സംസ്ഥാനത്ത് നെൽവയലുടമകൾക്ക് റോയൽറ്റി നൽകുന്ന പദ്ധതിക്ക് മുഖൃമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചു നെൽവയലുകളുടെ സംരക്ഷണവും ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി

ബിനീഷ് കോടിയേരിയുടെ വീട്ടിലെ ഇ

ഐപിഎല്ലിൽ പ്തേഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം ആദ്യ പ്തേ ഓഫിൽ മുംബൈ ഡൽഹിയെ നേരിടും

നെൽകൃഷിക്കാർക്കുള്ള പ്രോത്സാഹനത്തിനൊപ്പം നെൽവയലുകളുടെ സംരക്ഷണം കൂടി ലക്ഷ്യമിടുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു

ശശീന്ദ്രൻ കെഎസ്ആർടിസി സർവ്വീസുകളിലേക്ക് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുന്നതിനും ബസുകളുടെ ആധുനികവൽക്കരണവുമാണ് ലക്ഷൃം ഈ തുക ഉപയോഗിച്ച് പുതിയതായി നൂറ് ബസുകൾ കെഎസ്ആർടിസി വാങ്ങും

സംഘത്തിലുണ്ടായിരുന്നു സ്ക്രൂപ്പൂർ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും നിലവിൽ ആരും കസ്റ്റഡിയിൽ ഇല്ലെന്നും സംഭവം നടന്ന സ്ഥലത്ത് നിന്നും രക്ത സാമ്പിൾ പരിശോധിക്കുന്നുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു

അതിനിടെ രോഗമുക്തി നിരക്കിൽ വർദ്ധന തുടരുന്നു

ഇതിനുള്ള സാങ്കേതിക ക്രമീകരണങ്ങൾ നടക്കുന്നതിനാൽ ഇന്ന് റേഷൻ കടകൾ പ്രവർത്തിക്കുന്നില്ല

വീഡിയോ കോൺഫറൻസിംഗിലൂടെയായിരുന്നു ചടങ്ങ് നല്ല ജീവിത രീതി ആരോഗ്യ ശീലങ്ങൾ എന്നിവ പ്രചരിപ്പിക്കാനും പ്രാഥമികതലത്തിൽ ജനങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്താനും കുടുംബാരോഗൃ കേന്ദ്രങ്ങൾ ഉപകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു

മഹസറിൽ ഒപ്പിട്ടുൻ ബിനീഷിന്റെ ഭാര്യ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇഡ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ വരെ വീട്ടിൽ തുടർന്നതെന്നാണ്ട് റിപ്പോർട്ട്

ബിനീഷിന്റെ രണ്ടര വയസുകാരിയായ മകളെ ഭക്ഷണം പോലും നൽകാൻ അനുവദിക്കാതെ തടഞ്ഞുവച്ചു എന്നാരോപിച്ച് കുടുബം പരാതി നൽകിതിനെ തുടർന്ന് ബാലാവകാശ കമ്മീഷൻ സ്ഥലത്തെത്തി ഇതു സംബന്ധിച്ച തുടർ നടപടികൾക്കായി ഇന്ന് തന്നെ ഉത്തരവിടുമെന്നും ബാലാവകാശകമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് സംസ്ഥാന പൊലീസ് വിവരങ്ങൾ ആരാഞ്ഞു

ഡി അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വയനാട് കൽപ്പറ്റയിൽ പറഞ്ഞു പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ സത്യമെന്ന് തെളിഞ്ഞതായും അതു കൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ മുഖ്യമന്ത്രി വിമർശനം ഉയർത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു

ആദ്യ പ്ലേ ഓഫിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും

സ്വർണ്ണവിലയിൽ മാറ്റമില്ല

ആകാശവാണിയുടെ തിരുവവനന്തപുരം കണ്ണൂർ ബംഗളൂരു പ്രക്കോഴിക്കോട് നിലയങ്ങളിലും ബംഗളൂരു ദൂരദർശനിലും സേവനമനിഷ്ടിച്ചിട്ടുണ്ട്